എൺപതിനായിരത്തോളം പേരെ മാറ്റി പാർപ്പിച്ചു മത്സ്യത്തൊഴി ലാളികൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന് ശബരിമലയിൽ ഇന്ന് വൈകിട്ട് നട തുറ ക്കും ശബരിമലയിലും പരിസരപ്രദേശങ്ങളിലും ഏഴു ദിവസത്തേക്ക് നിരോ ധനാജഞ ശബരിമല ദർശനത്തിന് ഭൂമാതാ ബ്രിഗേഡ് നേതാവ് തൃപ്തി ദേശായിയും സംഘവും നെടുമ്പാശ്ശേരിയിൽ എത്തി

തമിഴ്നാടിന്റെ വടക്കൻ തീരപ്രദേശങ്ങളിൽ പുലർച്ചെ ഗജ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു

വേദാരണ്യത്തും നാഗപട്ടണത്തും നിരവധി വീടുകൾ തകർന്നതായി റിപ്പോർട്ടുണ്ട് മരങ്ങൾ കടപുഴകി വൈദ്യുതി വാർത്താവിനിമയ സംവിധാനങ്ങൾ താറുമാറായി ഏഴു ജില്ലകളിൽ കനത്ത മഴ പെയ്യുകയാണ് കേരളത്തിൽ ഏതാനും ജില്ലകളിൽ ശക്തമായ മഴ ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഗജ ചുഴലിക്കാറ്റിനെ തുടർന്ന് കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യത നില നിൽക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ ഇന്ന് വൈകിട്ട് മുതൽ ചൊവ്വാഴ്ച വരെ തെക്കുകിഴക്കൻ അറബിക്കടലിലും കേരള ലക്ഷദ്വീപ് തീരങ്ങളിലും കട ലിൽ പോകരുതെന്ന് കാലാവസ്ഥാകേന്ദ്രം മുന്നറിയിപ്പ് നൽകി കന്യാകുമാരി ഭാഗത്തും ഗൾഫ് ഓഫ് മാന്നാറിലും ശക്തമായ കാറ്റും കടൽക്ഷോഭവുമുണ്ടാകും മണ്ഡല മകര വിളക്ക് ഉത്സവത്തിന് ശബരിമലയിൽ ഇന്ന് വൈകിട്ട് അഞ്ചിന് നട തുറക്കും തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി എ

ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് നട തുറക്കുന്നത് സന്നിധാനത്തെ പുതിയ മേൽശാന്തിയായി എം

വാസുദേവൻ നമ്പൂതിരിയും മാളികപ്പുറത്തെ മേൽശാ ന്തിയായി എം

നാരായണൻ നമ്പൂതിരിയും ചുമതലയേൽക്കും നാളെ വൃശ്ചി കപ്പുലരിയിൽ പുതിയ മേൽശാന്തിമാരായിരിക്കും നട തുറക്കുന്നത് ശബരിമലയിലും പരിസരപ്രദേശങ്ങളിലും എഴ് ദിവസത്തേക്ക് നിരോധനാജ്ഞ നിലവിൽ വന്നു

ഇലവുങ്കൽ മുതൽ സന്നിധാനം വരെ എല്ലാ പ്രദേശ ങ്ങളിലും ഉപറോഡുകളിലും സംഘം ചേരുന്നതും പ്രകടനം പൊതുയോഗം പ്രാർഥനാ യജ്ഞങ്ങൾ എന്നിവ നടത്തുന്നതും നിരോധിച്ചിട്ടുണ്ട് തീർഥാടകരുടെ സമാധാനപരമായ ദർശനം വാഹനങ്ങളുടെ സഞ്ചാരം എന്നിവയെ നിരോധനാജ്ഞയിൽ നിന്ന് ഒഴിവാക്കി യിട്ടുണ്ട് സുരക്ഷയുടെ ഭാഗമായി പതിനയ്യായിരത്തോളം പോലീസുകാരെയാണ് ശബരിമലയിൽ വിന്യസിച്ചിരി ക്കുന്നത്

പ്രത്യേക പൊലീസ് കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട് ഭൂമാതാ ബ്രിഗേഡ് നേതാവ് തൃപ്തി ദേശായിയുൾപ്പെടെ ആറംഗ സംഘം ശബരിമല ദർശനത്തിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തി രാവിലെ നാലരയോടെ പൂനെയിൽ നിന്ന് എത്തിയ തൃപ്തി ദേശായിക്കും സംഘ ത്തിനും വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങാനായിട്ടില്ല നൂറു കണ ക്കിന് അയ്യപ്പ ഭക്തരും സംഘടനാനേതാക്കളും വിമാനത്താവളത്തിനുപുറത്ത് ശരണം വിളിയും നാമജപ സമരവുമായി തടിച്ചുകൂടിയിട്ടുണ്ട് തൃപ്തി ദേശായി യെയും സംഘത്തെയും പൊലീസ് വാഹനത്തിൽ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു ഒരു കാരണവശാലും സംഘത്തെ ശബരിമലയിലേക്ക് അയയ്ക്കില്ലെന്ന ശക്തമായ നിലപാടിലാണ് അവർ

ശബരിമല യുവതീപ്രവേശന വിധി നടപ്പാക്കുന്നതിന് സുപ്രീം കോട തിയിലെ സാവകാശ ഹർജിയുടെ സാധ്യത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പരിഗണിച്ചേക്കും

എല്ലാ നിയമവശങ്ങളും ആലോചിച്ചശേഷം ഇക്കാര്യത്തിൽ തീരു മാനമുണ്ടാകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ തിരുവനന്ത പുരത്ത് അറിയിച്ചു

നിലയ്ക്കലിൽ വിരി വയ്ക്കാൻ അടിസ്ഥാന സൌകരൃങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നെയ്യഭിഷേകത്തിനും അപ്പം അരവണ വിതരണത്തിനും കൂടുതൽ കൌണ്ടറുകൾ സജ്ജീകരിച്ചു

സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ എത്തിയതാ യിരുന്നു അദ്ദേഹം പുരോഹിതരെയും ഉദ്യോഗസ്ഥരെയും മാത്രമേ സന്നിധാനത്ത് തങ്ങാൻ അനുവദിക്കൂ ഏത് സാഹചര്യവും നേരിടാൻ പൊലീസ് സജ്ജമാണെന്നും ഡി ജി പി പറഞ്ഞു ആചാരാനുഷ്ഠാനങ്ങളിൽ പിന്നോട്ടില്ലെന്ന് പന്തളം കൊട്ടാരം പ്രതി നിധി പി

ശശികുമാരവർമ്മ പന്തളത്ത് പറഞ്ഞു ശബരിമലയിലെ സ്ത്രീപ്രവേ ശവുമായി ബന്ധപ്പെട്ട കൊട്ടാരത്തിന്റെ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച തായും മുഖ്യമന്ത്രി മുന്നോട്ടുവെച്ച നിർദ്ദേശങ്ങളിൽ ആലോചിച്ചു തീരുമാനമെടു ക്കുമെന്നും ശശികുമാരവർമ്മ പറഞ്ഞു

ക്കുകയാണെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി കോൺഗ്ര സിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച വിശ്വാസ സംരക്ഷണ മഹാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നാനാജാതി മതസ്ഥർ താമസിക്കുന്ന കേരളത്തിൽ വർഗ്ഗീയതയെ ജ്വലിപ്പിച്ച് നേട്ടം കൊയ്യാനാണ് മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും ശ്രമിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു ് ശബരിമല തീർത്ഥാടനകാലം ആരംഭിക്കവെ മാധ്യമ പ്രവർത്തകർക്ക് ഇലവുങ്കൽ മുതൽ നിയന്ത്രണം കൊണ്ടുവന്ന പൊലീസ് നടപടി അടിയന്തരാവ സ്ഥയ്ക്കു തുല്യമാണെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ബോബി എബ്രഹാം കുറ്റപ്പെടുത്തി

മന്ത്രി എ

ശശീന്ദ്ര നുമായി സംഘടനാനേതാക്കൾ നടത്തിയ ചർച്ചയിലാണ് പണിമുടക്ക് വേണ്ടെന്നു വെച്ചത്

ദേശീയ മാധ്യമ ദിനമായ ഇന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ന്യൂഡൽഹിയിൽ അവാർഡ് സമ്മാനി ക്കും

ലെത്തി

കരുത്തരായ റിലയൻസ് മുബൈയെ ക്വാർട്ടറിൽ എതിരില്ലാത്ത രണ്ട് ഗോളിനാണ് കേരളം തോല്പിച്ചത് ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്ക് സാമൂഹ്യ സുരക്ഷാമി ഷൻ ആരംഭിക്കുന്ന സ്പെക്ട്രം പദ്ധതി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണ റായി വിജയൻ ഉദ്ഘാടനം ചെയ്തു പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് നാലുകോടി രൂപയുടെ ഭരണാനുമതി ഗവൺമെന്റ് നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ശരണബാല്യം പദ്ധതി സംസ്ഥാന വ്യാപകമാക്കുന്ന പ്രഖ്യാപനവും മുഖ്യമന്ത്രി ചടങ്ങിൽ നിർവ്വഹിച്ചു ചിന്തകനും എഴുത്തുകാരനും പ്രഭാഷകനുമായ സുനിൽ പി ഇളയിട ത്തിനുനേരെയുണ്ടായ വധഭീഷണിയും ആക്രമണവും പ്രതിഷേധാർഹമാണെന്ന് മന്ത്രി എ

ആശയത്തെ ആയുധം കൊണ്ട് നേരിടു ന്നത് ഫാസിസമാണെന്നും സമൂഹത്തിൽ ഭീതി പരത്തി സ്വന്തം നിലപാടുകൾ സ്ഥാപിക്കാൻ സംഘ്പരിവാർ ശ്രമിക്കുകയാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി

ഫിഷറീസ് വകുപ്പ് അഡാക്ക് മുഖേന നടപ്പാക്കുന്ന മുറ്റത്തൊരു മീൻതോട്ടം പദ്ധതിയുടെ സംസ്ഥാനതല പരിശീലന പരിപാടി കൊല്ലം ആയിരം തെങ്ങ് ഗവൺമെന്റ് കൃഷി ഫാമിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

രഥോത്സവത്തോടനുബന്ധിച്ച് പാലക്കാട് താലൂക്കിലെ മുഴുവൻ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കുമെന്ന് ജില്ലാകലക്ടർ അറിയിച്ചു

മാർക്കറ്റ് ഇന്ന് ഉച്ചകഴിഞ്ഞ് മന്ത്രി പി തിലോത്തമൻ ഉദ്ഘാടനം ചെയ്യും വണ്ടി പ്പെരിയാർ പഞ്ചായത്തിലെ മ്ലാമലയിൽ സപ്ലൈകോ മാവേലി സ്റ്റോറും രാവിലെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോ തൃശൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര ക്ഷേമപദ്ധതികളെകുറിച്ച് എടത്തിരുത്തി പഞ്ചായത്തിൽ ഇന്ന് ബോധവൽക്ക രണ പരിപാടികൾ നടക്കും പൊതുമേഖലാ ബാങ്കുകൾ മുഖേന നടപ്പാക്കുന്ന കുറഞ്ഞ പ്രീമിയത്തോടുകൂടിയ ഇൻഷുറൻസ് പദ്ധതികൾ വിദ്യാഭ്യാസ വായ്പ കൾ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലനം തുടങ്ങിയവയെകുറിച്ച് മുതിർന്ന ബാങ്കു ദ്യോഗസ്ഥർ ക്ലാസെടുക്കും

കൈത്തറി വകുപ്പ് ഡയറക്ടറുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് തുകയ്ക്ക് ഭരണാനുമതി നൽകിയത്

റ കല്ലാർ കുമളി ഭാഗങ്ങൾ ശാക്തീകരിക്കുന്ന പ്രവൃത്തി നാളെ വണ്ടിപ്പെരിയാ റിൽ മന്ത്രി ജി

വെള്ളിയാമറ്റത്തെ നാളിയാനി കോഴിപ്പിള്ളി കുളമാവ് റോഡിന്റെ നിർമ്മാണം വൈകിട്ട് മന്ത്രി എ

മൊയ്തീനും ഉദ്ഘാടനം ചെയ്യും

തിരെ ജാഗ്രത പാലിക്കണമെന്ന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഭിന്നലിംഗക്കാ രുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമകാര്യ നിയമസഭാസമിതി കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു